മധ്യപ്രദേശ് നിയമസഭയിൽ നാളെ വിശാസ വോട്ടെടുപ്പ് നടത്തണമെന്ന് മുഖ്യമന്ത്രിക്ക് ഗവർണറുടെ നിർദ്ദേശം

യെസ് ബാങ്ക് പുനസംഘടനയ്ക്കായി സത്വര നടപടികൾ സ്വീകരിച്ചതായി ആർ

ഐ ഗവർണർ ശക്തികാന്ത ദാസ്

ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ആരോഗ്യ ജീവനക്കാരും രോഗബാധ ചെറുക്കുന്നതിനായി മികച്ച രീതിയിലുള്ള പരിശ്രമങ്ങളാണ് നടത്തുന്നത് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവർക്ക് മികച്ച പരിചരണം ലഭ്യമാക്കുന്ന കാര്യം ഉറപ്പു വരുത്തിയിട്ടുണ്ട് അത്യാവശ്യമില്ലാത്ത യാത്രകളും കൂടിച്ചേരലുകളും ഒഴിവാക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു

മാധ്യൂമ് പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം

രാജ്യസഭയിൽ ശൂന്യവേളയിലാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചത്

വിഷയം പരിഗണന അർഹിക്കുന്നത് ആണെന്നും നിർദ്ദേശം പരിശോധിക്കണമെന്നും സഭാ അധ്യക്ഷൻ വെങ്കയ്യ നായിഡു സർക്കാരിനോട് ആവശ്യപ്പെട്ടു അതേസമയം കൊറോണ വൈറസ് പടർന്നു പിടിക്കുന്നതിൽ നിരവധി അംഗങ്ങൾ ആശങ്ക രേഖപ്പെടുത്തി

ടി എമ്മുകൾ അണുവിമുക്തമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും വിമാനത്താവളങ്ങളിലെ ആഭ്യന്തര ടെർമിനലുകളിൽ ഉൾപ്പെടെ യാത്രക്കാരെ പരിശോധിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ കൂടുതൽ ഏർപ്പെടുത്തണമെന്ന് ബി ജെ

സാംപിത് പത്ര ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇറാനിലെ ടെഹ്റാൻ ഷിറാസ് മേഖലകളിൽ നിന്നുള്ളവരാണ് പുതിയ സംഘത്തിലുള്ളത്

ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കണം പനിയോ ചുമയോ ഉള്ളവർ മറ്റുള്ളവരുമായി അടുത്ത് ഇടപഴകരുത് കൈകൾ വൃത്തിയായി കഴുകാതെ കണ്ണ് മൂക്ക് വായ് തുടങ്ങിയ ഭാഗങ്ങളിൽ തൊടരുത് പൊതു സ്ഥലങ്ങളിൽ തുപ്പുകയോ മൂക്ക് ചീറ്റുകയോ ചെയ്യുന്നത് ഒഴിവാക്കണം സോപ്പും വെള്ളവുമുപയോഗിച്ചോ ആൾക്കഹോൾ അടങ്ങിയ ഹാൻഡ് വാഷ് അഥവാ സാനിറ്റൈസർ ഉപയോഗിച്ചോ ഇടയ്ക്കിടെ കൈകൾ വൃത്തിയാക്കണം

വിദേശത്ത് പഠനം കഴിഞ്ഞെത്തിയ ഡോക്ടർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെയാണ് ് ജാഗ്ഗത പുലർത്താൻ ആരോഗ്യ വകുപ്പിന്റെ മുന്നറിയിപ്പ് കൂടുതൽ ഡോക്ടർമാരെ നിരീക്ഷണത്തിലാക്കിട്ട് ഡോക്ടറുമായി സമ്പർക്കം പുലർത്തിയവർ എല്ലാം നിരീക്ഷണത്തിലാണ്

ശനിയാഴ്ച തിരുവനന്തപുരം ശ്രീചിത്രയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആശുപത്രി അധികൃതരിൽ നിന്ന് വിശദീകരണം തേടി

രോഗ ബാധയുമായി ബന്ധപ്പെട്ട വർക്കലയിലെ സ്ഥിതി ഗൌരവമുള്ളതാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു

ബജറ്റ് സമ്മേളനം ആരംഭിച്ച ഇന്ന് വിശ്വാസ വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് കൊറോണയുടെ പശ്ചാത്തലത്തിൽ സമ്മേളനം നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചത്

എമാരുടെ രാജിയെ തുടർന്ന് മധ്യപ്രദേശിൽ കമൽനാഥ് സർക്കാർ പ്രതിസന്ധി നേരിടുകയാണ്

ഇതോടെ രാജ്യത്തെ മൂന്ന് സംസ്കൃത സർവ്വകലാശാലകൾക്ക് കേന്ദ്ര സർവ്വകലാശാല പദവി ലഭിക്കും രാജ്യസഭയിൽ ശബ്ദവോട്ടോടെയാണ് ബിൽ പാസാക്കിയത് സംസ്കൃത സാഹിത്യം ഇന്തൃയുടെ വിലമതിക്കാനാകാത്ത സ്വത്തും തനതായ പൈതൃകവു മാണെന്ന് ചർച്ചക്ക് മറുപടി പറയവെ കേന്ദ്രമന്ത്രി രമേഷ് പൊക്രിയാൽ നിഷാങ്ക് സൂചിപ്പിച്ചു

മുംബൈയിൽ ആർബിഐ ആസ്ഥാനത്ത് സംഘടിപ്പിച്ച അടിയന്തര വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

യെസ്ബാങ്കിലുള്ള നിക്ഷേപകരുടെ പണം സുരക്ഷിതമാണെന്ന് ഗവർണർ ഉറപ്പു നൽകി ധൃതിയിൽ പണം പിൻവലിക്കേണ്ടതിന്റെയോ ആശങ്കകളുടെയോ കാര്യമില്ല

ഡിജിറ്റൽ പണമിടപാടിനെ പ്രോത്സാഹിപ്പിക്കാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയതായും റിസർവ് ബാങ്ക് ഗവർണർ അറിയിച്ചു ന്യൂസ് ഡസ്ക് ആകാശവാണി

ഡിജിറ്റൽ സേവനങ്ങൾ ഉറപ്പു വരുത്തുമെന്നും ബാങ്ക് വ്യക്തമാക്കി

രാജ്യം വിട്ടുപോയ വായ്പാ തട്ടിപ്പുക്കാർക്കെതിരെ സർക്കാർ എടുത്ത നടപടികളെക്കുറിച്ചാണ് മന്ത്രി മറുപടിയായി പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ലഭൃമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ഇതിനെ തുടർന്ന് സഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം തുടങ്ങി

പുരാതന സ്മാരകങ്ങളിൽ അനധികൃത നിർമ്മാണങ്ങൾ നടത്തുന്നതിനെതിരെ ലോക്സഭാംഗങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു

ഉൽപാദനം നിർമ്മാണം വൃവസായം ഗതാഗതം വിദ്യാഭ്യാസം ആരോഗ്യം താമസം ഭക്ഷണശാലകൾ വിവരസാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലാണ് നവീകരിച്ച രീതിയിൽ സർവ്വേ നടത്തി വരുന്നത്